നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

മുഖ്യമന്തി

കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു

കമ്മീഷന്റെ ഓൺലൈൻ ആർ ടി ഐ പോർട്ടൽ നിലവിൽ വന്നു

ബോധി വായനശാലകൾ തുറന്നു

പോലീസ് വീഴ്ച ഉന്നയിച്ച ഇത് മൂന്നാം ദിവസമാണ് സഭ തടസപ്പെടുന്നത് ഇതേ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്കു പിരിഞ്ഞു ആലുവ സംഭവം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മേലുള്ള ചർച്ചയിൽ സഭ പ്രക്ഷുബ്ദ്ധമായി സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായും കുറ്റക്കാരായ പോലീസുകാർക്ക് എതിരെ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കസ്റ്റഡിയിൽ എടുത്തതിന് എതിരെ പ്രതിഷേധിച്ചവരിൽ തീവ്രസ്വഭാവമുള്ള സംഘടനകൾ ഉണ്ടായിരുന്നെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും ആലുവ എം

അൻവർ സാദത്താണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് ഉസ്മാനെ കസ്റ്റഡിയിൽ എടുത്തതിനെ ചോദ്യം ചെയ്ത തന്റെ ബിഡുക്കളേയും പോലീസ് കൈകാര്യം ചെയ്തതായും ശ്രീ

മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ വെളിച്ചത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു

ശ്രീരാമകൃഷ്ണൻ സഭയിൽ മറുപടി നൽകി വരാപ്പുഴ സംഭവം ചൂണ്ടിക്കാട്ടി നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ ഇന്നലെ പരിഗണിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ചത് ഭരണ പക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ നിലപാടുകൾ സ്പീക്കറെ സ്വാധീനിക്കാറില്ലെന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു

നിയമസഭയിൽ രാവിലെ ശൂന്യവേളയിലാണ് സ്പീക്കർ തന്റെ നിലപാട് അറിയിച്ചത്

സുധാകരൻ നിയമസഭാരി അറിയിച്ചു

രജിസ്ട്രാർ ഓഫീസുകളിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ നടപടി എടുക്കും ഉയർന്ന മൂല്യമുള്ള മുദ്രപത്രങ്ങളുടെ ക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു നാസിക്കിലെ പ്രസിൽ ഉണ്ടായ പ്രശ്നങ്ങൾമൂലം ആറ് മാസത്തോളം മുദ്രപത്രങ്ങൾക്ക് ക്ഷാമം നേരിട്ടു

ടടടടടടടടടടടടടട നിയമസഭ മേഴ്സിക്കുട്ടി കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനും ഗവൺമെന്റ് നടപടി എടുത്ത് വരികയാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഇതിന്റെ ഭാഗമായി ഈ മാസം ഒമ്പതിന് തൊഴിൽ ഉടമകളുടെയും ബാങ്ക് പ്രതിനിധികളുടെയും ചർച്ച നടക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അനിയന്ത്രിതമായി ഫാക്ടറികൾ തുടങ്ങാൻ അനുമതി നൽകിയതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം

എഫ് അധികാരത്തിൽ വന്നശേഷം പൂട്ടിക്കിടന്ന പൊതുമേഖലാ ഫാക്ടറികൾ എല്ലാം തുറക്കാൻ കഴിഞ്ഞു

മേഴ്സിക്കുട്ടിയമ്മ തോട്ടം മേഖലയിൽ കശുമാവ് കൃഷി ചെയ്താൽ മാത്രമെ ഈ മേഖലയ്ക്ക് ആവശ്യമായ കശുവണ്ടി ലഭിക്കുകയുളളൂ വിദേശത്തു നിന്നും ഈ വർഷം തന്നെ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുമെന്നും സ്വകാര്യ ഭൂമിയിലെ കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു

ആർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി ഇതിൽ എ

ഐയും ഉൾപ്പെടും ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനു ഉത്തരവിട്ടു പൊലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മർദ്ദനത്തിനിരയായ ഉസ്മാനെതിരെ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും കേസ്സെടുത്തു

പ്രസവശേഷ ചികിത്സക്കായി ഇദ്ധ്ർ കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ അശുപത്രിയിൽ കുഞ്ഞില്ലാളതി എത്തിയതിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പ്പോലീസിനെ പിവരമറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ്ക്ക് പരിശോധനയിൽ യുവതിയുടെ താമസസ്ഥലത്തിനു സമീപത്ത് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി ജീർണ്ണിച്ച നിലയിലുള്ള മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി

ടി ഐ പോർട്ടൽ ആരംഭിച്ചു അന്വേഷണങ്ങൾക്ക് മറുപടി നൽകാനും അപ്പീൽ നൽകുന്നതിനും പോർട്ടൽ സഹായകരമായിരിക്കും

സേലത്തു നിന്ന് മലപ്പുറത്തേക്ക് വന്ന വാഹനത്തിന്റെ രഹസ്യ അറകളിൽ കടത്തുകയായിരുന്ന പണമാണ് രഹസ്യവിവരത്തെ തുടർന്ന് പാലക്കാട് എസ്

മലപ്പുറം രാമപുരം സ്വദേശികളായ ഹുസൈൻ സജാത് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു

കേരള അക്കാദ്മി ഫോർ സ്കിൽ എക്സലൻസ് തയ്യാറാക്കിയ സ്റ്റേറ്റ് ജോബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ഐ ടി ഐകളിൽ മാത്രം പ്രതിവർഷം എഴുപത്തയ്യായിരത്തോളം പേർ പരിശീലനം പൂർത്തിയാക്കി പുറത്തുവരുന്നുണ്ട് പോളിടെക്നിക്കുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും നിന്നുള്ളവരടക്കം ഒന്നരലക്ഷത്തോളം പേരാണ് വർഷംതോറും തൊഴിൽകമ്പോളത്തിലെത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു

പുതിയ കൃഷി ഭൂമി വായ്പാ പദ്ധതി തുടങ്ങുവാനും കോർപ്പറേഷൻ തീരുമാനിച്ചു

അർഹതപ്പെട്ടവരുടെ പ്രെുവിവരം കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

ആദ്യ രണ്ട് മൽസരങ്ങളും ജയിച്ചി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്

ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിൽ ബോട്ടിന്റെ മുൻ ഭാഗം തകർന്നു

വെള്ളി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണിമൂണ്ടാകില്ല